പ്രതിരോധമന്ത്രി രാജ് നാഥ് സിംഗ് ഇന്ന് ഫ്രാൻസിലേക്ക് തിരിക്കും

സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും

ആശുപത്രികൾ തയ്യാദാക്ണ്മെന്ന് കേന്ദ്ര സഹമന്ത്രി വി

രൂപീകരിക്കാൻ തത്വത്തിൽ ധാരണയായി

ദിനമായ നാളെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും

ഇന്ത്യയുടെ സുരേന്ദർസിംഗിന് മൂന്നു ലോക റെക്കോർഡ്

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിര്ലത്തുന്ന ശ്രീ

ഫ്രഞ്ച് പ്രൂതിരോധ മന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഫ്രാൻസിള്ലപ്രതീരോധ വ്യവസായ മേഖലയിലെ കമ്പനികളുടെ സി

അടുത്ത വർഷം ലക്നൌവിൽ നടക്കുന്ന ഡിഫ്ട്ൻസ് എക്സ്പോയിൽ പങ്കെടുക്കുന്നതിന് ഫ്രഞ്ച് കമ്പനികളെ കേന്ദ്രീമ്യ്ത്തി ക്ഷണിക്കും

നികുതിദായകർക്കുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും കൂടുതൽ സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് ഇ അസ്സസ്മെന്റ സെന്റർ

സൈനിക പോസ്റ്റുകൾക്കും ഗ്രാമ പ്രദേശങ്ങൾക്കും നേരെയാണ് ഇന്നലെ പാക് പ്രകോപനം ഉണ്ടായത് കത്വവ പൂഞ്ച് രജൌരി എന്നീ ജില്ലകളിലെ അതിർത്തിയിൽ ഉണ്ടായ വെടിവെയ്പ്പിൽ ആളപായമില്ല

വെടിവെയ്പ്പ് ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിന്നു

ഇന്ത്യയുടെ സഹായത്തോടെ മംഗോളിയയിൽ നടപ്പാക്കുന്ന മംഗോൾ റിഫൈനറി പദ്ധതിയുടെ അനുബന്ധ അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും

മാറ്റുന്നതിനെതിരായ ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു

മരങ്ങൾ കൂട്ടത്തോടെ മുറിച്ചു നീക്കുന്നതിനെതിരെ ലഭിച്ച കത്ത് ്യൂപ്രീംകോടതി പൊതുതാൽപ്പര്യ ഹർജിയായി പരിഗണിക്കുകയായിരുന്നു

നമ്മുടെ രാജ്യത്തെ അറിയൂ എന്ന് അർത്ഥമാക്കുന്ന ദേഖോ അപ്നാ ദേശ് എന്ന ആശയം പ്രചരിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം

മിനിമം വേതനം സംബന്ധിച്ച് കേന്ദ്രഗവൺമെന്റ് ഉത്തരവിറക്കിയെങ്കിലും കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ നിലപാട് മൂലം ഇത് പൂർണ്ണമായി നടപ്പാക്കാനായില്ല കൊച്ചിയിൽ സ്വകാര്യ വാർത്താ ചാനൽ സംഘടിപ്പിച്ച നേഴ്സിംഗ് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്പ്മെന്റ് അതോറിറ്റി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണിത്

കമ്മ്യുണിറ്റി ഡെവലപ്പ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമദ് അബ്ദുൽ കരീം ജുൽഫാറുമായാണ് മുഖ്യമന്ത്രി ചർച്ച നടത്തി

ഒരു റിപ്പോർട്ട്

കെ രാജീവ്കുമാർ ഒരുക്കിയ കോളാമ്പി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് എന്നിവയാണ് മലയാളത്തിൽ നിന്നും പനോരമയിൽ ഇടം നേടിയത് പണിയ ഇരുള ഗോത്ര ഭാഷകളിൽ മലയാളി സംവിധായകർ ഒരുക്കിയ സിനിമകളും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മനോജ് കാന പണിയ ഭാഷയിൽ ചിത്രീകരിച്ച കെഞ്ചിര വിജീഷ് മണി ഇരുള ഭാഷയിൽ ഒരുക്കിയ നേതാജി എന്നിവയാണ് ഇവ കഥേതര വിഭാഗത്തിൽ ജയരാജിന്റെ ശബ്ദിക്കുന്ന കലപ്പ എന്ന ചിത്രവും യുവസംവിധായകൻ നൊവിൻ വാസുദേവൻ ഒരുക്കിയ ഇരവിലും പകലിലും ഒടിയൻ എന്ന ചിത്രവും പനോരമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്

സംവിധായകൻ പ്രിയദർശൻ അധ്യക്ഷനായ ജൂറിയാണ് സിനിമകൾ തെരഞ്ഞെടുത്തത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിജയദശമി ദിനമായ നാളെ രാവിലെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും നവരാത്രിയോടനുബന്ധി ച്ചിട്ടുള്ള മഹാനവമിക്ക് അതീവ പ്രാധാന്യമാണുള്ളത്

കേരളത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും പുസ്തകങ്ങളും തൊഴിൽ ഉപകരണങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നുണ്ട് നാളെ ക്ഷേത്രങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് കുട്ടികൾ ആദ്യക്ഷരം കുറിക്കും

വിജയദശമി ദിനമായ്ക്കു നാളെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്നതോടെ സ്സ്പ്രി ജനസാഗരമാകും

നാളെ പുലർച്ചെ അഞ്ചുമുതൽ തുഞ്ചൻപറന്ടിൽ കുട്ടികളുടെ എഴുത്തിനിരുത്തൽ ആരംഭിക്കും

മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും ടി പി രാമകൃഷ്ണനും സമരസമതിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നിരാഹാരസമരം അവസാനിപ്പിച്ചത്

അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥരെയും സഹായിച്ച ശാസ്ത്രീയ അന്വേഷണ സംഘത്തിലുള്ളവരെയും അഭിനന്ദിക്കുന്നുവെന്ന് യുഎഇ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി ഫെയ്സ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു

അതേസമയം മൂന്ന് തവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ പവർലിഫ്റ്റിംഗ് താരം മുകേഷ് സിങ്ങ് നാലാം വട്ടവും സ്വന്തം ഇനത്തിൽ സ്വർണ്ണം നേടി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇതുവരെ നാല് സ്വർണ്ണവും ഒരു വെള്ളിയും നേടി

ഏഷ്യൻ പ്രതീക്ഷയായിരുന്ന ച്ചൈനയ്ക്ക് നാലാം സ്ഥാനത്ത് എത്താനേ സാധിച്ചുള്ളൂ അതേസമയം ഇന്ന്യ്യ്ക്ക് മെഡൽ പട്ടികയിൽ ഇടം നേടാനായില്ല

അഫീലിന്റെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലായിട്ടുണ്ട്